ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് വ്വീടുന്നിർമ്മാണത്തിന് ആർ ഡി ഒ യുടെ എൻ

എന്നാൽ ഇത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നത് കണക്കിലെടുത്താണ് ഈ അധികാരം എട്ട് വില്ലേജ് ഓഫീസർമാർക്ക് നൽകിയത്

മൂന്നാറിൽ ഗൃഹനിർമ്മാണത്തിന് വില്ലേജ് ഓഫീസറുടെ എൻ

സി വേണമെന്ന നിബന്ധന പിൻവലിക്കില്ലെന്ന് റവന്യൂമന്ത്രി ഇ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി കർഷക താൽപ്പര്യം സംരക്ഷിക്കാനാണ് നിബന്ധനയെന്നും മന്ത്രി പറഞ്ഞു വീട് വയ്ക്കാൻ എൻ

ഡി